ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാംഘട്ടത്തിലേ ക്കുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു കാസർകോട് കള്ളവോട്ട് ചെയ്ത യുവാവിന് എതിരെ ചീമേനി പൊലീസ് കേസെടുത്തു

രാവിനെ പകലാക്കുന്ന തൃശ്ശൂർ ് ്പൂരത്തിന് മറ്റന്നാൾ കൊടിയേറ്റം

മെഡിക്കൽ പ്രൂവേശനത്തിനായുള്ള നീറ്റ് പരീക്ഷ നാളെ

എസ്

സി പരീക്ഷാഫല പ്രഖ്യാപനം മറ്റെന്നാൾ

എറണാകുളം പാലാരിവട്ടത്തെ ഫ്ളൈ ഓവറിന്റെ നിർമാണത്തിലുണ്ടായ വീഴ്ച വിജിലൻസ് അന്വേഷി ക്കും

അതിനിടെ കാ സർകോട് കള്ളവോട്ട് ചെയ്തെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക ണ്ടെത്തിയ യുവാവിന് എതിരെ ചീമേനി പൊലീസ് കേസെടു ത്തു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദേശപ്രകാരമാണ് കേസെടുത്തത്

ജില്ലാ കലക്ടർ നടത്തിയ പരിശോധനയിൽ കളളവോട്ട് ന ടന്നതായി തെളിഞ്ഞിരുന്നു ആൾമാറാട്ടം വ്യാജ വോട്ട് ചെയ്യൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത് കൊല്ല ത്തും മാവേലിക്കരയിലും സി

എം കള്ളവോട്ട് ചെയ്തെന്ന യു

എഫ് പരാതിയിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റി പ്പോർട്ട് തേടിയിട്ടുണ്ട്

പൂരത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി അവലോകനയോഗത്തിന് ശേഷം മന്ത്രി വി

നിലവിൽ ഫോനിയുടെ ശക്തി കുറഞ്ഞതായാണ് വിവരം പശ്ചിമബംഗാളിലെ തീരദേശജില്ല കളിൽ ഇന്ന് രാവിലെ ആഞ്ഞടിച്ച കാറ്റിലും മഴയിലും നിരവധി വീടുകളും മരങ്ങളും നിലംപൊത്തി ആളപായം റിപ്പോർട്ട് ചെയ്തി ട്ടില്ല ഒഡീഷയിൽ ഇന്നലെ വീശിയടിച്ച ഫോനി പത്തുപേരുടെ ജീ വനെടുത്തിരുന്നു

ഇതോടൊപ്പം തന്നെ ടി എച്ച്

സി ടി എച്ച്

സി ഹിയറിംഗ് ഇംപേർഡ് എസ്

സി ഹിയറിംഗ് ഇംപേർഡ് എ എച്ച്

സി എന്നീ പരീക്ഷകളുടെ ഫലപ്രഖ്യാപനവും ഉണ്ടായിരിക്കും പൊലീസ് അറസ്റ്റ് തൊടുപുഴയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ക്രൂര മർദ്ദനത്തി ന് വിധേയമാക്കിയെന്ന കേസിൽ കുട്ടിയുടെ അമ്മയുടെ സുഹൃ ത്തും ബന്ധുവുമായ പട്ടയം കവല സ്വദേശി ജയേഷിനെ പൊലീ സ് അറസ്റ്റ് ചെയ്തു

ബന്ധുവിനൊപ്പം കുട്ടി നേരി ട്ട് പൊലീസ് സ്റ്റേഷനിലെത്തിയാണ് പരാതി നൽകിയത്

ഔദോഗിക ബഹുമതികളോടെ തലശ്ശേരി ഓടത്തിൽ പള്ളി ഖബർസ്ഥാനിലാണ് ഖബറടക്കുക

ഭിന്നശേഷി സമൂഹത്തിന്റെ ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് ഉയർത്തികൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയുളള ബാരിയർഫ്രീ ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ കണ്ണൂരിൽ ആരംഭിച്ചു

തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് കൈറ്റ് ഫെസ്റ്റി വൽ നടത്തുന്നത്

യുഡിഎഫ് ഭരണകാലത്ത് ക്ട് ഗ് കോടി രൂപ മുടക്കിയാണ് പാലം നിർമിച്ചത് വീഴ്ചക്ക് ഉത്തർവാദിയായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മ്യന്തി ജി

വിശദാംശങ്ങളുമായി കൊല്ലതു നിന്നും ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ

വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ

ജലീൽ വ കുപ്പ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി മെഡിക്കൽ കോളജിൽ ചി കിത്സയിൽ കഴിയുന്ന വിദ്യാർഥിനിയിൽ നിന്നും മജിസ്ട്രേട്ട് ഇന്ന് മൊഴിയെടുത്തു സംഭവത്തിലൂടെ ഇടതുവിദ്യാർത്ഥി സംഘടനയുടെ ഭീകരമുഖം ഒരിക്കൽക്കൂടി പുറത്തുവന്നിരിക്കുകയാണെന്ന് ക്കെ

ഇക്കാര്യത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ക്യാമ്പ് കൽപ്പറ്റ പഴയ വൈത്തിരിയിലെ സ്വകാര്യം തേയിലത്തോട്ടത്തിൽ കാട്ടാന പ്രസവിച്ച മേഖലയിൽ വന്ന്വിക്കുപ്പ് നിയന്ത്രണം ഏർപ്പെടു ത്തി

പതിനൊത്നോളം കാട്ടാനകളുടെ സംഘം പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ട് പ്രനം വകുപ്പ് വെറ്ററിനറി സംഘവും വനപാലകരും പോലീസ്കും സ്ഥലത്ത് കാ്യാമ്പ് ചെയ്യുന്നുണ്ട്

പി പാലാ നിയമസഭാസീറ്റിൽ സ്ഥാനാർഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ശുപാർശ ചെയ്യുക മാത്രമാണ് ചെയ്തെന്നും എൻ

പി നേതാവ് മാണി സി കാപ്പൻ പറഞ്ഞു സ്ഥാനാർഥിയെ എൽ

എഫ് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

വിശദമായ പരിശോധനക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു